വെങ്കിട്ടരാമന് ജാമൃം പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച്ച്ചിയില്ലെന്ന് പി

സിവിൽ പോലീസ് ഓഫ്ടീസർ പരീക്ഷയിൽ സത്യസന്ധമായ ആണ്പ്പ്ഷണം നടന്നതായും പി എസ് സി ചെയർമാൻ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു ന് ആറ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലെർട്ട്

വിജയകരമെന്ന് ഐ എസ് ആർ ഒ

തൂത്തുവാരാൻ ഇന്ത്യ

ബഷീർ വാഹനമിടിച്ച് മരിച്ച കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് ജാമ്യം തിരുവനന്തപുരം സിജെഎം കോടതിയാണ് ശ്രീറാമിന് ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിയാണ് കോടതി ജാമ്യം നൽകിയത് സമൂഹത്തിന് മാതൃയാകേണ്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ശ്രീറാം കുറ്റക്കാരനാണെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ ്വാദം എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളി നേരത്തെ ശ്രീറാമിനെ തെളിവ് ശേഖരണത്തിനായി കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യവും കോടതി തള്ളിയിരുന്നു

പ്രതി മദ്യപിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടെത്തിയെന്നും കോടതി ചോദിച്ചു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയും പോലീസ് ്ഹാജരാക്കിയിരുന്നു ഇതിനൊപ്പം മാധ്യമ പ്രവർത്തകള്ളൂർ പ്രഖ്ബെക്കിന്റെയും ഇടിച്ച കാറിന്റെയും അവശിഷ്ടങ്ങളും പോലീസ് ക്ലോടിതിയിൽ ഹാജരാക്കി സസ്പെൻഷൻ തടവുകാരെ ഉദ്യോഗസ്ഥർ മർദിച്ച സംഭവത്തിൽ വിയ്യൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് എസ് സജീവന് സസ്പെൻഷൻ സൂപ്രണ്ടിന്റെ ഭാഗത്ത് മേൽനോട്ടക്കുറവുണ്ടായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ ഡി ജി

ഋഷിരാജ് സിംഗിന്റെ നടപടി

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തിയതായും ഇതുസംബന്ധിച്ച റിപ്പോർട്ട് കമ്മീഷൻ വിശദമായി പരിശോധിച്ചതായും അദ്ദേഹം പറഞ്ഞു

എന്നാൽ പി എസ് സി യുടെയും ഗവൺമെന്റിന്റെയും വിശ്വാസ്യത തകർന്നതായി പ്രതിപക്ഷനേതാവ് രമേശ് ച്ചെന്നിത്തല ആരോപിച്ചു

എസ് സി ചെയർമാനും സംശയത്തിന്റെ നീഴ്ലിലാണെന്നും അദ്ദേഹത്തിന്റെ പങ്കും അന്വേഷിക്കണമെണ്ടു ്പ്രതിപക്ഷനേതാവ് ആവശ്യപ്പെട്ടു പി എസ് സി നിയമനങ്ങളിലെ അഴിമൃതി ആരോപണ ശ്രമം സംബന്ധിച്ച് സിബിഐ അന്വേഷണം വേൺഎമുന്ന് ബി ജെ പി സംസഥാന അധ്യക്ഷൻ പി

എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലെർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറുടെ ചുമതലയുള്ള ശാസ്ത്രജ്ഞ ഡോ

ശക്തമായ കാറ്റ് പലയിടത്തും നാശമുണ്ടാക്കി മലയോര പ്രദേശങ്ങളിൽ മഴയുടെ തീവ്രത കൂടുതലാണ് ഇരിട്ടി വീരാജ്പേട്ട അന്തർസംസ്ഥാനപാതയിലെ മാക്കൂട്ടത്തിനടുത്ത് പെരുമ്പാടിയിൽ തകർന്ന റോഡ് വിദഗ്ധ സംഘം പരിശോധിച്ചു റോഡ് തകർന്നതിനെ തുടർന്ന് ബംഗളൂരുവിലേക്കുള്ള വാഹനങ്ങൾ മാനന്തവാടി വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്

നഗരത്തിൽ പ്ലെയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് ചാലിയാറും ഇരുവഴിഞ്ഞീയുട് കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്

ശൈലജ അങ്കണവാടികൾ മുഖേന വിതരണം ചെയ്യുന്ന ഭക്ഷ്യ വസ്തുക്കൾ നീതി സഹകരണ സ്റ്റോറുകൾ തീരമൈത്രി സൂപ്പർ മാർക്കറ്റുകൾ വഴി തദ്ദേശ സ്വയംഭരണ സ്ഥാപങ്ങൾക്കു വാങ്ങി വിതരണം ചെയ്യാമെന്ന് മന്ത്രി കെ

നിരവധി നിവേദനങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർക്കുലർ ഇറക്കിയത്

ആർ ഒ

ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണ പഥത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ഇനി പേടകം

രണ്ട് സ്ത്രീകൾ ഉൾപ്പെട്ട് ആറംഗ സംഘമാണ് ഇവിടെ എത്തിയത് പ്രദേശത്തെ അഭിനവ് കോള്ളനിയോട് ചേർന്ന് താമസിക്കുന്ന തോട്ടാശ്ശേരി സിദ്ധീഖിന്റെ ്രവീട്ടീലാണ് ഇന്നലെ രാത്രിയോടെ മാവോയിസ്റ്റ് സംഘമെത്തിയുത് തണ്ടർബോൾട്ടും പോലീസും സ്ഥലത്തെത്തി പരിശോക്യുക്ക് നടത്തി

ജില്ലാ കേന്ദ്രങ്ങളിലെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴിയാണ് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നത്

വിശദാംശങ്ങളുമായി ലിഖിത

ഇത്തരം പരാതിക്കാർ പരാതി നൽകുന്നതിന് പോലീസ് സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും അനുബന്ധപ്രശ്നങ്ങളും ഇതോടെ പൂർണ്ണമായും ഒഴിവാകും ഇന്ത്യയിൽ ആദ്യമായാണ് ബധിരർക്കായി ഇത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത്

പരാതിക്കാരന്റെ ആംഗൃഭാഷയിലൂടെ പരാതിയുടെ ഉള്ളടക്കം മനസ്സിലാക്കി പരാതി എഴുതി തയ്യാറാക്കി പോലീസ് ഉദ്യോഗസ്ഥന് ഇ മെയിലായി അയച്ചുകൊടുക്കും കൂടാതെ പരാതിക്കാരൻ ആംഗ്യഭാഷയിൽ പരാതി നൽകുന്നതിന്റെ വീഡിയോ ദൃശ്യവും പോലീസ് സ്റ്റേഷനിലേയ്ക്ക് അയച്ചുനൽകും ഇന്ത്യയിലെ ആദ്യ ബധിരസംരംഭകയായ തീർഥ നിർമ്മലിന്റെ സ്റ്റാർട്ട് അപ്പ് സംരംഭമായ സൈൻ നെക്സ്റ്റ് എന്ന സ്ഥാപനമാണ് സോഫ്റ്റ് വെയർ തയ്യാറാക്കുന്നത്

രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം

ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിന് നടക്കുന്ന മത്സരത്തിൽ സമ്പൂർണ പരമ്പര വിജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്